ശബരിമല തന്ത്രിയെ മാറ്റുന്ന കാര്യം തീരുമാനിക്കേണ്ടത് ദേവസ്വംബോർഡാണെന്ന് മന്ത്രി കടകംപളളി സുരേന്ദ്രൻ ശബരിമല വിഷയത്തിൽ ്കലാപത്തിന് കാരണക്കാർ സംസ്ഥാന ഗവൺമെൻറാണെന്ന് എൻഎസ്എസ് ജിഎസ്ടി മന്ത്രിതലുസമിതിയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ നാലാം ദിവസത്തെ മത്സരം മഴയും വെളിച്ചിക്കുറവും മൂലം നേരത്തെ അവസാനിപ്പിച്ചു

ശബരിമല തന്ത്രിയെ മാറ്റുന്നകാര്യം തീരുമാനിക്കേണ്ടത് ദേവസം ബോർഡാണെന്ന് മന്ത്രി കടകംപളളി സുരേന്ദ്രൻ പറ ഞ്ഞു നട അടച്ച് ശുദ്ധിക്രിയ നടത്തിയത് സുപ്രീംകോടതി വിധി യുടെ ലംഘനമാണ് ഇക്കാര്യത്തിൽ തന്ത്രിയോട് വിശദീകരണം തേടും വിശദീകരണം കിട്ടുന്ന മുറയ്ക്ക് ദേവസം ബോർഡ് ഉചി തമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വൃക്തമാക്കി

ഉപയോ ഗിക്കാൻ പാടില്ലാത്ത വാക്ക് കൊണ്ടാണ് മന്ത്രി ജി സുധാകരൻ തന്തിയെ കുറ്റപ്പെടുത്തിയത്

മത ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഉറപ്പിക്കുന്നതിനുളള തന്ത്രമാണ് യുവതികളെ ശബരിമലയിൽ കയറ്റിയതിന് പിന്നിൽ യുപിഎ കേന്ദ്ര ത്തിൽ അധികാരത്തിൽ വന്നാൽ ശബരിമല സർബന്ധിച്ച് നിയമ നിർമാണം ആവശ്യപ്പെടുമെന്നും മുരളീധരൻ വ്യക്തമാക്കി

വിശ്വാസം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഗവൺമെന്റ് നവോത്ഥാനം പറഞ്ഞ് നിരീശ്വര വാദം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് പ്രതിഷേധത്തിന് രാഷ്ട്രീയ നിറം നൽകുന്നത് ജനാധിപത്യ ഗവൺമെന്റിന് ചേർന്നതല്ലെന്നും സുകുമാരൻനായർ സ്ഥകാര്യ ചാനലിനോട് പറഞ്ഞു എരുമേലി പേട്ടതുളളലിന് അമ്പലപ്പുഴ സംഘം ഇന്ന് രാവിലെ യാത്ര തിരിച്ചു

ശക്തമായ പൊലീസ് നിരീ ക്ഷണത്തിലാണ് സന്നിധാനവും പമ്പയും ശബരിമലയിൽ വൻ തീർത്ഥാടന തിരക്ക് തുടരുകയാണ്

പാർട്ടി സംസ്ഥാന വൈസ്പ്രസിഡന്റ് പി എം വേലായുധനാണ് ഇപ്പോൾ നിരാഹാരമനുഷ്ഠിക്കുന്നത് ഹർത്താലിൽ അക്രമങ്ങൾ നടത്തിയവരെ ഉടൻ പിടികൂടുമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി അറിയിച്ചു ജാഗ്രത തുടരാൻ എസ് പി മാർക്ക് നിർദ്ദേശം നൽകിയതായി ഡിജിപി പറഞ്ഞു വർഗീയ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കുമെന്നും ലോക്നാഥ് ബെഹ്റ അറിയിച്ചു തലശ്ശേരി ന്യൂമാഹി പൊലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരോ ധനാജ്ഞ നാളെ അർദ്ധരാത്രിവരെ നീട്ടി ഇന്നലെ ഉണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ ഡിഖ്ഐഫ് ഐ പ്രവർത്തകന് വെട്ടേറ്റു

അർദ്ധ രാത്രി മുഖംമൂടി ധരിച്ച് ബൈക്കിൽ എത്തിയ സംഘമാണ് വീട്ടിൽ കയറി വെട്ടിയത് കോഴിക്കോട് പേരാമ്പ്രയിൽ പളളിക്കുനേരെ കല്ലെറിഞ്ഞ സംഭ വത്തിൽ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായി പന്നി മുക്ക് മാണിക്കോത്ത് അതുൽദ്യാസാണ് അറസ്റ്റിലായത്

പുതിയ പരോക്ഷ നികുതി വ്യവ സ്ഥയ്ക്ക് കീഴിൽ പ്രളയ സെസ് എത്രമാത്രം പ്രായോഗികമായിരി ക്കുമെന്നത് യോഗത്തീൽ പ്രധാന ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ട്

കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പളളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നാളെ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും പാർട്ടി പുനഃസംഘടന മുഖ്യചർച്ചാവിഷയമായേക്കും

ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുളള സ്ത്രീകൾക്ക് സൌജന്യ പാചകവാതക കണക്ഷൻ നൽകുന്നതാണ് പദ്ധതി

കനത്ത മൂടൽമഞ്ഞ് കാരണം സിങ്കപ്പൂർ ബംഗളൂരു വിമാനവും ഗോവ ബംഗളൂരു വിമാനവും വഴിതിരിച്ചു വിട്ടു

ഫോളോഓൺ ചെയ്ത ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റൊന്നും നഷ്ട പ്പെടാതെ ആറ് റൺസെടുത്തു

തുടർന്നാണ് അവർ ഫോളോഓൺ ആരംഭിച്ചത്

അബുദാബിയിൽ ഏഷ്യകപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും

ചെന്നൈയിൽ ദേശീയ സീനിയർ വോളിബോളിൽ കേരള ത്തിന്റെ പുരൂഷ വനിതാ ടീമുകൾ കാർട്ടർ ഫൈനലിൽ കടന്നു പ്രീകാർട്ടറിൽ പുരുഷ വിഭാഗത്തിൽ തമിഴ്നാടിനേയും വനിതാ വിഭാഗത്തിൽ മഹാരാഷ്ട്രയേയുമാണ് കേരളം തോൽപിച്ചത് കാർട്ടർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും അടുത്ത ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ പണിമുടക്കിൽ കടകൾ നിർബ ന്ധിച്ച് അട പ്പിക്കില്ലെന്നും ട്രെയിനുകൾ തടയില്ലെന്നും സിഐടിയു അഖി ലേന്ത്യാ സെക്രട്ടറി കെ

പ്രകോപന മുണ്ടാക്കില്ലെന്ന് സിഐടിയു സംസ്ഥാന സെക്രട്ടറി എളമരം കരീമും പറഞ്ഞു ടൂറിസം മേഖലയെ ഹർത്താലിൽ നിന്ന് ഒഴി വാക്കിയിട്ടുണ്ട് പണിമുടക്ക് ദിവസങ്ങളിൽ കടകൾ തുറക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്റുദ്ധീൻ കോഴിക്കോട്ട് പറഞ്ഞു തൊഴിലാളികൾ പണിമു ടക്കിയാൽ എതിർക്കില്ലെന്നും വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് വി

ഹോട്ടലുകളും ആശുപത്രികളും പണിമുടക്ക് ദിവസങ്ങളിൽ പ്രവർത്തിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്

എസ്

ടി സി അറിയിച്ചു പമ്പയിലേക്കും തിരിച്ചും സർവീസുകളുണ്ടാകും സംസ്ഥാനത്തെ മികച്ച ഗവ ആശ്ശുപത്രിയ്ക്ക് നൽകുന്ന കായ കൽപം അവാർഡ് കാസർകോട് ജില്ലാ ആശുപത്രിയ്ക്ക് ഡോക്ടർമാരുടേയും ജീവനക്കാരുടെയും സമർപ്പണം രോഗീ സൌഹൃദ സംവിധാന്നങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങി യവ പരിഗണിച്ചാണ് അവാർഡ് സംസ്ഥാനത്തെ അമ്പതോളം ജില്ലാ ജനറൽ ആശുപത്രിക ളിൽ നിന്നുമാണ് കാസർകോട് ജില്ലാ ആശുപത്രിയെ മികച്ചതായി തെരഞ്ഞെടുത്തത്

സംസ്ഥാന ഹജ്ജ് കമ്മറ്റി മുഖേന ഹജ്ജ് നിർവ്വഹിക്കുന്ന വരെ കണ്ടെത്താൻ വ്യാഴാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കും

ആധാരമെഴുത്ത് മേഖലയെ തകർക്കുന്ന നടപടികളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ കാസർകോട് കൺവെൻഷൻ ആവശ്യപ്പെട്ടു പരിഷ്കരങ്ങൾ നട പ്പിലാക്കുമ്പോൾ ഈ രംഗത്ത് തൊഴിലെടുക്കുന്നവരുടെ അഭിപ്രായം കൂടി പരിഗണിക്കണമെന്ന് കൺവെൻഷൻ നിർദേശിച്ചു ജില്ലാപഞ്ചാ യത്ത് പ്രസിഡന്റ് എ ജി ബഷീർ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് സാമൂഹ്യമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട മലപ്പുറം മംഗലം കൃഷിഭവൻ ജീവനക്കാരിയെ സസ്പെന്റ് ചെയ്തു കൃഷി അസിസ്റ്റന്റ് കെ എസ് സിന്ധു വാണ് സ്സ്പെൻഷനിലായ ത് തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ കേസിൽ പ്രധാന്യ പ്രതിയുടെ സഹോദരൻ പോലീസ് പിടിയിലായി

പ്രവീണിനെ ഒളിവിൽ പോക്റാൻ സഹായിച്ചത് ഇയാളാണെന്ന് പോലീസ് പറഞ്ഞു

സംസ്കാർം വൈകിട്ട് നാലിന് കയ്പമംഗലം കണക്ക ശ്ശേരിയിലെ വീട്ടുപ്പളപ്പിൽ നടക്കും കണ്ണൂർ പയ്യുന്നൂരിൽ ഇലക്ട്രിക്കൽ കടയ്ക്ക് തീ പിടിച്ചു പെരുമ്പയിലെ സോനാ ലൈറ്റ്സ് എന്ന സ്ഥാപനത്തിലാണ് രാവിലെ തീപിടുത്തമുണ്ടായത്

ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ യാത്രക്കാരുമായി പോയ ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് നാല് പേർക്ക് പരി ക്കേറ്റു ഒൻപതാം വളവിലാണ് രാവിലെ അപകടമുണ്ടായത് പരി ക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ പ്രവേ ശിപ്പിച്ചു